ത ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത കോവിഡ് രോഗബാധ യെത്തുടർന്നാണ് സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി കെ കെ ശൈലജ

ത കേന്ദ്ര ഗവൺമെന്റിന് കീഴിലെ സംരക്ഷിത സ്മാരകങ്ങൾ ഇന്നുമുതൽ പൂർണ്ണമായി തുറക്കും ത പൊന്നാനിയിൽ അക്വാറ്റിക് സ്പോർട്സ് കോംപ്ലക്സിന് കിഫ്ബി അനുമതി വാർത്തകൾ വിശദമായി കോവിഡ് സമ്പർക്ക രോഗബാധ വർദ്ധിക്കുന്നതിനെത്തുടർന്ന് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ ഒരാഴ്ചത്തെ ട്രിപ്പിൾ ലോക്ഡൌൺ നിലവിൽ വന്നു രാവിലെ ആറിന് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലായി

ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് കർശന നിയന്ത്രണത്തിന് നിർദ്ദേശം നൽകിയത് സെക്രട്ടറിയേറ്റ് അടക്കം കോർപ്പറേഷൻ പരിധിയിലെ ഗവൺമെന്റ് ഓഫീസുകൾ തുറക്കില്ല

നഗരത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനും ഓരോ വഴി മാത്രമായിരിക്കും ഉണ്ടാവുക പൊതു ഗതാഗതം അനുവദിക്കില്ല

ആശുപത്രികൾ മെഡിക്കൽ ഷോപ്പുകൾ അവശ്യ സാധന വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവ തുറക്കാം പലചരക്ക് കടകൾ തുറക്കുമെങ്കിലും സാധനങ്ങൾ അവിടെ പോയി വാങ്ങാൻ അനുവദിക്കില്ല ആവശ്യക്കാർക്ക് പൊലീസ് സാധനങ്ങൾ എത്തിച്ചുകൊടുക്കും ജനങ്ങൾ വീടിന് പുറത്ത് പോകരുതെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ ആവശ്യപ്പെട്ടു പൊലീസിന്റെ വ്യാപക പരിശോധന എല്ലാ മേഖലയിലും ഉണ്ടാവും

ടി

പെട്രോൾ പമ്പുകൾ പാചക വാതക വിതരണം ജലം വൈദ്യുതി ശുചീകരണം മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണം ബാധകമല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഔദ്യോഗിക വസതിയിൽ കഴിഞ്ഞ് ജോലി ചെയ്യും കേരള സർവ്വകലാശാല നഗരസഭാ പരിധിയിൽ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു രുദ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത കോവിഡ് രോഗബാധ യെത്തുടർന്നാണ് തലസ്ഥാനത്ത് സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി കെ

ഗവൺമെന്റ് നിയന്ത്രണങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി സ്വകാര്യ വാർത്താ ചാനലിനോട് പറഞ്ഞു രോഗവ്യാപനം ഭീകരമായ അവസ്ഥയിലേയ്ക്ക് പോകാതിരിക്കാനാണ് നടപടി ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ

ജയചന്ദ്രൻ

വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ

വിദേശത്തുനിന്ന് എത്തി വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു ഇയാൾ കോട്ടയം ജില്ലയിൽ ഒരു കുടുംബത്തിലെ മൂന്നുപേർ ഉൾപ്പെടെ എട്ടുപേർക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു

രുമ മലപ്പുറം താനൂരിൽ കോവിഡ് സമൂഹ വ്യാപനം ഉണ്ടായോ എന്നറിയാൻ ആക്ടീവ് സർവ്വൈലൻസ് പരിശോധന തുടങ്ങി താനൂരിലെ തുറമുഖം മത്സ്യമാർക്കറ്റ് കോവിഡ് സ്ഥിരീകരിച്ചയാൾ എത്തിയ ഐസ് ഫാക്ടറി എന്നിവിടങ്ങളിൽ വിദഗ്ദ്ധസംഘം പരിശോധന നടത്തി ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ നാലുദിവസം പരിശോധന തുടരും രുമ മലപ്പുറം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ആരോഗ്യവകുപ്പ് കിടത്തി ചികിത്സാ സൌകര്യമൊരുക്കി

ഇന്ന് രാത്രി എട്ടുമുതൽ എയർ ഇന്ത്യ വെബ്സൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്

ഗൾഫ് വിമാനങ്ങൾക്ക് പുറമെ ചിക്കാഗോ വിമാനവും നാളെ സർവ്വീസ് നടത്തും

ഇതിന് പ്രത്യേക നിരക്ക് ഈടാക്കില്ലെന്ന് സൌദി പ്രസ് ഏജൻസി അറിയിച്ചു രുമ കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരക്ഷിത സ്മാരകങ്ങൾ ഇന്നുമുതൽ പൂർണ്ണമായി തുറന്ന് പ്രവർത്തിക്കും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഇവ തുറക്കുന്നതെന്ന് ടൂറിസം മന്ത്രി പ്രഹ്നാദ് സിംഗ് പട്ടേൽ ഡൽഹിയിൽ അറിയിച്ചു

ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മാർഗ്ഗ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും സ്മാരകങ്ങൾ തുറന്ന് കൊടുക്കുന്നത്

ഈശ്വരമംഗലത്ത് നഗരസഭാ മിനി സ്റ്റേഡിയത്തിലാണ് മലബാറിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് രുര വയനാട് ജില്ലയിലെ വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിയ്ക്കാൻ കർമ്മ പരിപാടി തയ്യാറാക്കുന്നതിന് കൽപ്പറ്റ ബത്തേരി എം എൽ എമാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി അഞ്ചുവർഷം കൊണ്ട് നടപ്പാക്കുന്ന പരിപാടിയുടെ ആദ്യഘട്ടം ഈ വർഷം തന്നെ തുടങ്ങും

രുമ തൃശൂർ ജില്ലയിലെ കൊരട്ടി മേഖലയിൽ ശക്തമായ മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായി കൊരട്ടി ചിറങ്ങര പൊങ്ങം എന്നിവിടങ്ങളിൽ അർദ്ധരാത്രിയോടടുത്താണ് കാറ്റും മഴയും ഉണ്ടായത് രുമ തൃശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത് അണക്കെട്ട് മേഖലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ചാലക്കുടി പുഴയിൽ ഇറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകി വഞ്ചിയ്ക്കും ചങ്ങാടത്തിനും നിരോധനം ഏർപ്പെടുത്തി

ദേദ ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് മോദി നഗറിൽ മെഴുകുതിരി നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഏഴുപേർ മരിച്ചു നാലുപേർക്ക് സാരമായി പരിക്കേറ്റു സംഭവത്തെപ്പറ്റി മജിസ്ട്രേറ്റ്തല അന്വേഷണത്തിന് ഗവൺമെന്റ് നിർദ്ദേശം നൽകി

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെയാണ് ഇത്തവണ ആദരിച്ചത്